മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സൌകര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരുടെ യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ശബരിമല തീർത്ഥാടകർക്ക് പൊലീസിന്റെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം സജ്ജമായി ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതായി സുപ്രീംകോടതി നിയോ ഗിച്ച ഉന്നതാധികാര സമിതി കണ്ടെത്തി തിരുവനന്തപുരം കാസർകോട് നിർദ്ദിഷ്ട ദേശീയ ജല പാതയ്ക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സഹായം ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ വെസ്റ്റിൻഡീസ് അഞ്ചാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ

ഗുജറാത്തിലെ നർമ്മദ ജില്ല യിൽ കെവാദിയ ഗ്രാമത്തിലാണ് വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിമയുടെ കാൽച്ചുവട്ടിൽ നിർമ്മിച്ചി രിക്കുന്ന ഐക്യത്തിന്റെ ഭിത്തിയും പ്രധാനമന്ത്രി ഉദ്ദ്ഘാടനം ചെയ്യും സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി മണ്ണും നർമ്മദ ജലവും കലശത്തിലാക്കി പ്രതീകാത്മകമായി ശില്പത്തിൽ അഭിഷേകം ചെയ്യും

ചടങ്ങിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികളും സ്ംഘടിപ്പിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവുമായ ഇന്ന് ദേശീയ പുനരർപ്പണ ദിനമായും ഏകൃതാ ദിനമായും ആചരിക്കും

പിന്നീട് ദേശീയ പുനർപ്പണ പ്രതിജ്ഞയും ഏകതാ പ്രതിജ്ഞയും ഉദ്യോഗസ്ഥർ ഏറ്റുചൊല്ലും ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനസൌകര്യ ങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരുടെ യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേരും

തമിഴ്നാട് കർണ്ണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പുതുച്ചേരി മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർക്ക് ദർശനത്തിനായി പൊലീസിന്റെ ഓൺലൈൻ ബുക്കിംഗ് സംവി ധാനം സജ്ജമായി ഒരു ടിക്കറ്റിന് പത്തുപ്പേർക്ക് വരെ ദർശനം ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്

തിരുവിതാംകൂർ ദേവസ്വംബോർഡിന് കീഴിൽ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലെ ശബ രിമല ഇടത്താവളങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയിച്ചു വണ്ടിപ്പെരിയാർ മുണ്ടക്കയം എരുമേ ലി ഏറ്റുമാനൂർ വൈക്കം തിരുനക്കര എന്നിവിടങ്ങളിൽ അന്നദാ നമടക്കം സൌകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് തീരു മാനങ്ങളെടുത്തത് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ലംഘിച്ച് നിർമ്മാണ പ്രവർത്ത നങ്ങൾ നടന്നതായി സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ്യറിപ്പോർട്ട് സമിതി നാളെ സുപ്രീംകോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ട് മറ്റ ന്നാൾ അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടു ണ്ട് ഇടക്കാല റിപ്പോർട്ടിന് മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് നാലാഴ്ച സമയം നൽകും ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോ ടതി വിധിയോട് അനുകൂലമാണെന്ന് രാഹുൽ ഗ്രാന്ധിയുടെ അഭി പ്രായം സ്വാഗതാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ പറഞ്ഞു പാർട്ടി അധ്യക്ഷന്റെയും എ

സിയുടെയും അഭി പ്രായം കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ലാത്തത് ദൌർഭാഗ്യകര മാണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

സ്ത്രീ പുരുഷ സമത്പം എന്ന ചിന്താഗതി പുലർത്തുന്ന വൃക്തിയാണ് രാഹുൽ ഗാന്ധി എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശബരിമലയുമായി ബന്ധപ്പെട്ട സാഹ ചരൃങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു ആ സമയത്ത് കേരളഘടകത്തിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നുവെന്ന് മുല്ലപ്പള്ളി കോഴിക്കോട്ട് പറ ഞ്ഞു

ശബരിമല വിഷയത്തിലെ കോടതി വിധി ഗവൺമെന്റ് ചോദിച്ച് വാങ്ങിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കുറ്റപ്പെടുത്തി കോഴിക്കോട്ട് യു ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം

ജെ പിയും സി

എമ്മും പരസ്പരം ആവശ്യമായ സമയത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് പതിവാണ് പ്രസ്പരം പാലൂ ട്ടുന്ന ശത്രുക്കളാണ് ഇരു കക്ഷികളുമെന്നും ചെന്നിത്തല പറ ഞ്ഞു

വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയം തുറന്നുകാണാൻ അവർക്ക് സാധിക്കില്ലെന്നും നന്മയുള്ള ഒരു യുവതി പോലും ശബരിമല ചവിട്ടാൻ തയ്യറാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ശബരിമല ആചാരങ്ങൾ അട്ടിമറിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെ ബിജെപ്പി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ്ഗോപി തിരുവനന്തപുരം മുതൽ കാസർകോടു വരെ നിർദ്ദിഷ്ട ദേശീയ ജലപാതയ്ക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്ഥഹായം വാഗ്ദാനം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറി യിച്ചു ഇന്നലെ തലശ്ശേരിയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം മൂന്ന് ദേശീ യപാതാ വികസന പദ്ധതികളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുഖ്യമന്ത്രി

അനധികൃത താമസക്കാർക്ക് യുഎഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു മാസം കൂടി നീട്ടി ഇന്ന് അവസാനിക്കേണ്ടിയിരുന്ന പൊതുമാപ്പ് കാലാവധി ഡിസംബർ ഒന്നു വരെയാണ് നീട്ടിയത് ഇന്ത്യ വെസ്റ്റിൻഡീസ് അഞ്ചാം ഏകദിന ക്രിക്കറ്റ് മത്സരം തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇരുടീമുകളും ഇന്നലെ തിരുവനന്തപുരത്ത് എത്തി ഇന്ത്യൻ ടീം ഇന്ന് രാവിലെ സ്പോർട്സ് ഹബ്ബിൽ പരിശീലനത്തിന് ഇറങ്ങും അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ അവസാന മത്സരം ഇരുടീമുകൾക്കും നിർണായകമാണ് പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ഇന്ത്യയാണ് മുന്നിട്ടുനിൽക്കുന്നത്

എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റ ഡിന് ജയം ഡൽഹി ഡൈനാമോസിനെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ഇതോടെ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നാം സ്ഥാനത്തെത്തി കണ്ണൂരിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ആറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി

ഉല്പാദനത്തിലൂടെയും മൂല്യവർദ്ധിത ഉല്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെയും നാളികേരത്തെ മികച്ച സാമ്പത്തിക സ്രോതസ്സായി മാറ്റിയെടുക്കാൻ കഴിയണമെന്ന് മന്ത്രി വി

കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിൽ കേര ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിപരീത ചിന്തകളെ അതിജീവിച്ച് നവോത്ഥാനത്തിലേക്ക് കട ക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി പ്രൊഫ

ര വീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു

പട്ടികവർഗ്ഗ വികസനവകുപ്പ് നടപ്പാക്കുന്ന സാമൂഹ്യ പഠനമുറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം വിതുര തലത്തൂതക്കാവ് ഗവൺമെന്റ് ട്രൈബൽ എൽ

പട്ടികവർഗ്ഗ വിദ്യാർത്ഥികളുടെ പഠനനില വാരം മെച്ചപ്പെടുത്താൻ ട്യൂഷൻ പഠനസാമഗ്രികൾ ലഘുഭക്ഷ ണം കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് മന്ത്രി എ കെ ബാലൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും പ്രളയാനന്തര കാർഷിക പ്രവർത്തനങ്ങൾക്കായി കണ്ണൂർ ജില്ല യിൽ അഞ്ചുകോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി

സംസ്ഥാന ഹോർട്ടി കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചത് ജില്ലാ കാർഷിക വിക സന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന യാത്ര ്വൈകീട്ട് കല്ലേകുളങ്ങര കൈപ്പത്തി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ചു കോട്ടമൈതാനത്ത് സമാപിക്കും

കൽക്കരി ക്ഷാമവും യന്ത്രത്തകരാറും മൂലം കേന്ദ്ര നിലയങ്ങളിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട വൈദ്യു തിയിൽ കുറവുണ്ടായ സാഹചര്യത്തിലാണ് നിയന്ത്രണം വേണ്ടി വരുന്നത് വൈകിട്ട് ആറുമുതലായിരിക്കും നിയന്ത്രണം സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരണ പരി പാടികളിലൂടെ പുതിയ തലമുറയ്ക്ക് കരുത്ത് പകരണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

ഇടുക്കി രാജാക്കാട് പഞ്ചായത്തിൽ സംഘടി പ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പാലക്കാട് എലപ്പുള്ളിയിൽ ആരംഭിച്ച കൊച്ചി സേലം വാതക പൈപ്പ് ലൈന്റെ രണ്ടാം ഘട്ട നിർമ്മാണം കർഷക പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തി